അണായുധ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും മുന്നിലുണ്ടാകുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ

ആദിശങ്കരൻ ശ്രീനാരായണഗുരു അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം സംബന്ധിച്ച് ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിവച്ചിരുന്നു

രാവിലെ നിയമസഭാമന്ദിരത്തിലെത്തിയ രാഷ്ട്രപ്പിത്രീ സ്ന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി നിയസഭാ വളപ്പിൽ പ്യൂക്ഷതൈ നട്ടു

കൊച്ചിയിലും തൃശൂരിലും വിവിധ പരിപ്പാടിയിൽ പങ്കെടുത്തശേഷം നാളെ അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും

നിയമസഭയിൽ ഫെസ്റ്റിവൽ ഓൺ ഡമോക്രസി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഭയിൽ ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ അന്തസ്സും അംഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം ഇക്കാര്യത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കെതിരെ നിരന്തരം പരാതികളുയരാറുണ്ടെന്നും ഗവർണ്ണർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി

സോഗാം വനത്തിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് ത്വസഫ് അഹമ്മദ് ഷായെ അറസ്റ്റ് ചെയ്തത് കാണ്ഡഹാറിൽ ആയുധ തട്ടിയെടുത്ത സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചിൽ ജസ്റ്റിസ് ഡി

ചന്ദ്രചൂഡ് അവധിയായതിനാലാണ് കേസ് മാറ്റിവച്ചത്

വിഷയം ഭരണ ഘടന് ബ്ഞ്ചിന് വിടണമോ കാര്യത്തിലും കോടതി ഇതിനുശേഷം തീരുമാനമെടുക്കും

രാജ്യസഭാ അധ്യക്ഷൻ എം

കുര്യൻ വിരമിച്ച ഒഴിവിലേയ്ക്കാണ് തെരഞ്ഞെടുപ്പ്

ഒബിസി വിഭാഗങ്ങൾക്കുള്ള ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണിത്

ശൂന്യവേളയിൽ നടന്ന ചർച്ചയിൽ ബിജെപി അംഗം ഡോ അശോക് വാജ്പേയിയാണ് വിഷയം ഉന്നയിച്ചത്

വിഷയം ഗവൺമെൻ്റും വിവിധ സാമൂഹിക സംഘടനകളും ഗൌരവമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുത്തൻവെല്ലുവിളികളെ അതിജീവിക്കാനായി ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇംപ്രിന്റ് രണ്ട് പദ്ധതിപ്രകാരുമാണിത്

ലജ്പത്നഗർ മുതൽ ദുർഗാബായി ദേശ്മുഖ് സൌത്ത് ക്യാമ്പസ് വരെ നീളുന്നതാണ് പുതിയ പാത

ഇതു വഴിയുള്ള ഗതാഗതം നാളെയോടെ പുനസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു മുന്നറിയിപ്പ് കർണാടക കേരള ലക്ഷദീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്

ആധാർ സംവിധാനത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള സ്ഥാപിത താൽപര്യക്കാരുടെ നീക്കങ്ങളെ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമായി വിമർശിച്ചു ആധാർ വിവരങ്ങൾ ചോരുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും പൂർണ്ണമായും അവ സുരക്ഷിതമാണെന്നും യു

എ ഐ അധികൃതർ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയ്സ് ഹിരോഷിമയിലെ സമാധാന സ്മാരകത്തിൽ നടന്ന ദിനാചരണത്തിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ അടക്കം ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നു

അണ്ചായുധ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജപ്പാൻ എന്നും മുന്നിലുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

അതിലേറെ പേർക്ക് ദൂരന്തത്തിൽ പരിക്കേറ്റു

ദീപക് തൻഗിരിയും അൻവർ അലിയുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി വിജയഗോൾ നേടിയത്

നാറ്റഡോളയിൽ നടന്ന ഫിജി അന്താരാഷ്ട്ര മത്സരത്തിലെ ഫൈനലിലാണ്

ഓസ്ട്രേലിയൻ ത്രാർം ആന്റണി ഖയലിനെ പിന്തള്ളിയാണ് ഗഗൻജിത് കിരീടം സ്പ്രന്തമാക്കിയത്